ഈ മാസം എട്ട് വരെ പത്രിക പിൻവലിക്കാം

കേരളത്തിനു പുറമെ ഗുജറാത്ത് ഗോവ ദാദ്രാനഗർ ഹവേലി ദാമൻ ദിയു എന്നിവിടങ്ങളിലെ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും മൂന്നാംഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും

ഗോവയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ശിരോദ മാൻഡ്രം മാപ്പൂസാ നിയമസഭാ മണ്ഡലങ്ങളിലേക്കായി ഒൻമ്പത് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്

ന്യൂസ് ഡസ്ക് ആകാശവാണി

ജെ

യും കോൺഗ്രസ്സും കൂടാതെ എസ്

പി ആർ എൽ

സഖ്യവും മത്സര രംഗത്തിറങ്ങിയതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് സഹരൺപൂർ സാക്ഷ്യം വഹിക്കുന്നതെന്ന് ആകാശവാണി പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു

ജെ

അധ്യക്ഷൻ അമിത് ഷാ അരുണാചൽ പ്രദേശിലെ ചംഗ്ലാംഗ് മീണിപ്പൂരിലെ തൌബാൾ ആസ്സാമിലെ മൌറിഗാവോൺ എന്നിപ്പിട്ങ്ങളിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ സംബന്ധിക്കും തൃണമുൽ കോൺഗ്രസ് അധ്യക്ഷയും ബംഗാൾ മുഖ്യമന്ത്രിയുമായു മമതാ ബാനർജി അസമിലെ ധൂബ്രി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുന്നുണ്ട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി വാദ്ര ഗാസിയാബാദിലെ റോഡ് ഷോയിൽ പങ്കെടുക്കും തെലങ്കാനയിലും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് രാഷ്ട്രീയ പാർട്ടികൾ സജീവമാണ്

ഇന്നലെ ഗുവാഹത്തിയിൽ അമർ ലക്ഷ്യ അമർ പാൻ എന്ന തലക്കെട്ടോടെയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് ആസാമിന് പ്രത്യേക പരിഗണന നൽകും എന്ന് പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു അധികാരത്തിൽ വന്നാൽ കൃത്യതയുള്ള ദേശീയ പൌരത്വ രജിസ്ട്രേഷൻ ഉറപ്പാക്കുമെന്നും പ്രകടന പത്രിക ഉറപ്പു നൽകുന്നു പൌരത്വ ഭേഗദഗതി ബിൽ നടപ്പാക്കുമെന്നും ആറ് സമുദായങ്ങളെക്കൂടി പട്ടിക വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമെന്നും വെള്ളപ്പൊക്കം കടൽക്ഷോഭം തുടങ്ങിയ പ്രകൃതി ക്ഷോഭങ്ങൾ വരുത്തിയ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം കാണുമെന്നും പ്രകടന പത്രിക ഉറപ്പുനൽകുന്നു

തങ്ങളുട്ടി ചിഹ്നവുമായി സാമ്യമുണ്ടെന്ന ജനതാദൾ യുണൈറ്റഡിന്റെ പരാതിയിൻമേലാണ് നടപടി അമ്പും വില്ലുമാണ് ജെ എം

ന്റെയും ശിവസേനയുടെ ചിഹ്നങ്ങൾ

സംസ്ഥാനത്തെ നിരക്ഷരരായ വോട്ടർമാരിൽ ചിഹ്നങ്ങൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്ന് ജെ

യു നേതാവ് രാജീവ് രൺജൻ നേരത്തെ പരാതിപ്പെട്ടിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകപക്ഷീയമായാണ് നിലപാട് കൊക്കൊണ്ടതെന്നും തങ്ങളുടെ വാദം കേൾക്കാൻ തയ്യാറായില്ലെന്നും ജെ

വിഷയത്തിൽ പാറ്റ്ന ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

താൻ അധികാരത്തിലെത്തിയാൽ ഇലക്ഷൻ കമ്മീഷനെ രണ്ട് ദിവസം ജയിലിലിടുമെന്ന് അംബേദ്കർ ഒരു തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞതിനാണ് കേസെടുത്തത് അംബേദ്കറുടെ പ്രസംഗത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രിദ്ദേശത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകീ ഭരണഘടനാ ശിൽപി ബി

അംബേദ്കറുടെ ചെറ്റുമകിനായ പ്രകാശ് അംബേദ്കർ മഹാരാഷ്ട്രയിലെ സോലാപ്പൂരിൽ ്നിന്നും അകോലയിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്

ഹർജിക്കാർ ആദ്യം ഹൈക്കോടതിയെ സമീപിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു വിഷയത്തിൽ ഹൈക്കോടതിയുടെ അഭിപ്രായം അറിയാൻ താൽപര്യപ്പെടുന്നതായി ജസ്റ്റിസുമാരായ എസ്

ബോബ്ഡെ എസ്

ദേശീയ പ്രാധാന്യമുള്ള വിഷയമായതിനാൽ സുപ്രീംകോടതി ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കണമെന്ന് ഹർജിക്കാരുടെ അഭിഭാഷകനായ അഭിഷേക് മനു സിംഗ്വി പറഞ്ഞു മൊബൈൽ സിം കാർഡ് ലഭിക്കുന്നതിനും ബാങ്ക് അക്കൌണ്ടുകൾ തുറക്കുന്നതിനും ആധാർ തിരിച്ചറിയൽ രേഖയാക്കി കഴിഞ്ഞമാസം മൂന്നിനാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആധാർ ഓർഡിനൻസിന് അനുമതി നൽകിയത്

ജാമ്യാപേക്ഷയിൻമേൽ സി ബി ഐ ചൊവ്വാഴ്ചയ്ക്കകം മറുപടി അറിയിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് അറ്റിയിച്ചു ് കഴിഞ്ഞ ജനുവരിയിൽ ത്ധാർഖണ്ഡ് ഹൈക്കോടതി ജാമ്യാപ്പേക്ഷ തള്ളിയതിനെ തുടർന്നാണ് റാഞ്ചിയിലെ ബിർസാമുണ്ട ജയിലിൽ കഴിയുന്ന ലാലുപ്രസാദ് യാദവ് സൂപ്രീംകോടതിയെ സമ്മീപ്പിച്ചത്

അഴിമതി നടന്ന കാലയളവിൽ ആർ

ഭരണത്തിൻ കീഴിൽ ലാലുപ്രസാദ് യാദവായിരുന്നു മുഖ്യമന്ത്രി

എ ഗവൺമെന്റ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ തൊഴിൽ സംസ്കാരത്തിലും ഭരണശൈലിയിലും കാര്യമായ മാറ്റം വരുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാഹചര്യങ്ങൾ മാറിയതായും രാജ്യത്തെ യുവാക്കളിൽ പുതിയ ഉണർവ് ഉണ്ടായതായും അദ്ദേഹം ഒരു സ്വകാര്യ ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു രാജ്യസേവനത്തെ സാധാരണ രീതിയിൽ കണ്ട് എല്ലാം വിധിക്ക് വിട്ടുനൽകിയ മുൻ ഗവൺമെന്റുകളിൽ നിന്ന് വ്യത്യസ്തമായി അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാനമന്ത്രിയെ രാജ്യം കണ്ടതായി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു

എ

രാജ്യതാൽപര്യം മുൻനിർത്തി താൻ ശക്തവും സുപ്രധാനവുമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു

ഡൽഹിയിലെ പ്രാദേശിക കോടതി നാളെ ഏജൻസിയുടെ കുറ്റപത്രം ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് പ്രത്യേക ജഡ്ജി അരവിന്ദ് കുമാർ പറഞ്ഞു അനുബന്ധ കുറ്റപത്രത്തിൽ ഏജൻസി മൂന്ന് സ്ഥാപനങ്ങളെ കൂടി പ്രതിചേർത്തിട്ടുണ്ട് മിഷേയ്ലിന്റെ കൂട്ടുകച്ചവടക്കാരായ ഡേവിഡ് സൈമ്സ് ഗ്ലോബൽ സർവ്വീസ് ലിമിറ്റഡ് ഗ്ലോബൽ ട്രെയ്ഡിംഗ് ലിമിറ്റഡ് എന്നിവയാണവ

ലഷ്കർ ഇ തൊയ്ബ പ്രവർത്തകനായ ഫൊർദൌസ് ഖാനെയാണ് പിടികൂടിയത് ബരാമുള്ള ജില്ലയിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് സന്ദ്പാൽ നിവാസിയായ ഇയാൾ പിടിയിലായത് ഇയാളിൽ നിന്ന് ഗ്രനേഡുകളും പൊലീസ് പിടിച്ചെടുത്തു

ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഉപമന്ത്രി അലക്സി വോളിന്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ സംഘം വാർത്താ പ്രക്ഷേപണ് മന്ത്രാലയം സെക്രട്ടറി അമിത് ഖാരെയുമായാണ് ചർച്ച നടത്തിയത്

എല്ലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും നൈറ്റ് റൈഡേഴ്സും ഏറ്റുമുട്ടും

ഇന്നലെ ഡൽഹിയിൽ നടന്ന മൽസരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ സൺ റൈസേഴ്സ് ഹൈദരാബാദ് അഞ്ച് വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇതോടെ നാല് മൽസരങ്ങളിൽ നിന്ന് ആറ് പോയിന്റുമായി ഹൈദരാബാദ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തി